മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു

രാഷ്ട്രീയ കക്ഷികളും മുന്നുണികളും ജനസമ്പർക്ക യാത്രകളിൽ കേരളാ കോൺഗ്രസ് ജ്ജോസ് വിഭാഗത്തിന് ന് രണ്ടില ചിഹ്നം അക്ടുവ്ദിച്ചത് ചോദ്യം ചെയ്ത് പി ജെ ജോസഫ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി

ഉയർന്ന കോവിഡ് ബാധയുള്ള മേഖലകളിൽ സുരക്ഷ കർശനമാക്കാൻ കേന്ദ്ര നിർദ്ദേശം

എസ്

കെ മോഹൻ ബഗാനെ നേരിടും

കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് താനൂരിലും വെള്ളയിലും തുറമുഖങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്

വനിതാ ശാക്തീകരണത്തിനും സംരക്ഷണത്തിനുമായി കമ്മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും തുടർന്ന് പയ്യന്നൂർ ഇരിട്ടി പാനൂർ തലശേരി എന്നിവിടങ്ങളിലൂടെ ജാഥ കടന്നുപോകും വൈകിട്ട് കണ്ണൂരിൽ ചേരുന്ന ജില്ലാ സമാപന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി വി

വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ പരിപാടിയിൽ കുമ്മനം രാജശേഖരൻ എ

അബ്ദുള്ളകുട്ടി ശോഭ സുരേന്ദ്രൻ സി

നാളെ രാവിലെ കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയായ അഴിയൂരിൽ വിജയ യാത്രയെ സ്വീകരിക്കും

തിരുവല്ലയിലും റാന്നിയിലും ഇന്നലെ വൈകിട്ട് ജാഥയ്ക്ക് സ്വീകണം നൽകി കോന്നി അടൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ ഇന്ന് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും

മലപ്പുറൃത്ത്പ്പ് വികസന മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെട്ട് ്സംസാരിക്കുക യായിരുന്നു അദ്ദേഹം സർക്കാരിന് നിയമം അനുസരിച്ചേ നടപടി എടുക്കാൻ കഴിയൂ

അതും സർക്കാർ പരിഗണിക്കേണ്ടതല്ലേട്ടെയ്ന്നൂട് ശ്രീ

ഏറനാട് നിലമ്പൂർ പെർിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ഇന്ന് വൈകിട്ട് പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കും

നാളെയും മറ്റന്നാളും ജില്ലയിലെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും

വിവാദമായപ്പോൾ കുറ്റം ഉദ്യോഗസ്ഥരിൽ ആരോപിച്ച് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കടൽത്തീരം കുത്തകകൾക്ക് വിൽക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും ശ്രീ ചെന്നിത്തല ആരോപിച്ചു

ഔപചാരിക സമാപന സമ്മേളനം നാളെ വൈകിട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ശംഖുമുഖത്ത് ഉദ്ഘാടനം ചെയ്യും ജനകീയം പദയാത്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ കേരളാ കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന പദയാത്ര ജനകീയം പാലാ നിയോജക മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന യോഗങ്ങളിൽ മന്ത്രിമാരും എൽ

ടൂജോസഫിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി ് നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഹർജി തള്ളിയിരുന്നു ഇതു സംബന്ധിച്ച സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു

നാരായണ സാമി രാജിവച്ചു കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതായി സ്പീക്കർ നിയമസഭയിൽ അറിയിച്ചു തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മാത്രം അവശേഷിക്കെയാണ് നാരായണ സാമി സർക്കാരിന് വിശ്വാസവോട്ട് നഷ്ടമായത് കോൺഗ്രസിന്റെ അഞ്ച് എം എൽ എ മാരടക്കം ഭരണകക്ഷിയിൽ നിന്ന് ആറ് എം എൽ എ മാരാണ് രാജിവച്ചത്

അതിനിടെ ഉയർന്ന കോവിഡ്ബാധ രേഖപ്പെടുത്തുന്ന ജില്ലകളിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കാൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു

ത്വരിത ആന്റിജൻ പരിശോധനയിലൂടെ രോഗബാധയില്ലെസ്സ് കാണുന്നവർക്ക് ആർ

സി ആർ പരിശോധന ന്റീർബ്ന്ധമാക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു

എസ്സി റാങ്ക് ലിസ്റ്റുകാരുടെ വിഷയത്തിൽ പ്രതിപക്ഷം തെറ്റിധാർണ്ട്യു്ണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി കടകംപള്ളി സുര്ർേന്ദ്രൻ പറഞ്ഞു പട്ടികയിൽ ഉൾപ്പെട്ടവരെ മുഴുവൻ നിയമിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി

കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ആർ

എസ് ആർ ടി സി ജീവനക്കാർ നാളെ പ്രഖ്യാപിച്ച സമരം ഒഴിവാക്കാൻ ചീഫ് മാനേജിങ് ഡയറക്ടർ ബിജു പ്രഭാകർ തൊഴിലാളി സംഘടനകളുമായി ഇന്ന് ചർച്ച നടത്തും ജീവനക്കാർ പണിമുടക്കിൽ നിന്ന് പിൻമാറണമെന്ന് ഇന്നലെ മന്ത്രി എ

കോഴിക്കോട് മാലിന്യ നിർമ്മാർജ്ജനം കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ ഗ്രാമപഞ്ചായത്തിലെ പൂഴിത്തല മുതൽ ചോമ്പാല ഹാർബർ വരെയുള്ള തീരദേശത്തെ എട്ട് ടൺ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു ശുചിത്വസാഗരം പദ്ധതിയുടെ ഭാഗമായി കടൽത്തീരത്ത് നിന്ന് ശേഖരിച്ച പ്ളാസ്റ്റിക്ക് മാലിന്യങ്ങൾ പിന്നീട് സംസ്ക്കരിക്കും

വംശനാശ ഭീഷണി നേരിടുന്ന് അപ്മൂർവ ഇനം സസ്യശേഖരം കണ്ടെത്താനായി നേച്ചർ ക്സ്ടാസെറ്റി വനംവകുപ്പിന്റെ സഹകരണത്തോടെയൂണ് സർവ്വേ നടത്തുന്നത്

എൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോവയിൽ ഹൈദരാബാദ് എഫ്

കെ മോഹൻ ബഗാനെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് എഫ്

സി ഗോവ മൂന്നാം സ്ഥാനത്തെത്തി

കണ്ണൂർ നാശനഷ്ടം കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നലെ വൈകുന്നേരം വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലും അഞ്ച് വീടുകൾ തകർന്നു ഉളിക്കൽ മുണ്ടാന്നൂരിൽ വ്യാപക നാശനഷ്ടവും കൃഷിനാശവുമുണ്ടായി